നടപ്പാക്കുന്നത് സർവകക്ഷി യോഗത്തിലെ തീരുമാനങ്ങൾ

വാർത്തകൾ വിശദമായി സംസ്ഥാനത്ത് ഇന്നു മുതൽ കർശന കോവിഡ് നിയന്ത്രണങ്ങൾ നിലവിൽ വരും രോഗ വ്യാപനം രൂക്ഷമാകുന്ന സാഹചര്യത്തിൽ ഇന്നലെ ചേർന്ന സർവകക്ഷിയോഗത്തിന്റെ തീരുമാനപ്രകാരമാണ് നിയന്ത്രണങ്ങൾ

ബാറുകൾ വിദേശമദ്യ വിൽപ്പനശാലകൾ സിനിമാ തീയേറ്ററുകൾ മാളുകൾ ജിംനേഷ്യം ക്സബുകൾ സ്പോർട്സ് സമുച്ചയങ്ങൾ നീന്തൽ കുളങ്ങൾ വിനോദ പാർക്കുകൾ എന്നിവ തുറക്കില്ല

സ്ഥാപനങ്ങൾക്ക് ശനിയാഴ്ചകളിൽ തുടർന്നും അവധി നല്കും കടകളും റെസ്റ്റോറന്റുകളും ഹോട്ടലുകളും വൈകീട്ട് ഏഴര വരെ മാത്രമേ പ്രവർത്തിക്കാവൂ

വിവാഹവും ഗൃഹപ്രവേശവും ഉൾപ്പെടെ പരിപാടികൾ കോവിഡ് ജാഗ്രതാ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം

തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപന ദിവസമായ മെയ് രണ്ടിന് ആഹ്ലാദപ്രകടനവും ആൾക്കൂട്ടവും പാടില്ലെന്ന് ഇന്നലെ ചേർന്ന സർവകക്ഷി യോഗത്തിൽ തീരുമാനിച്ചിട്ടുണ്ട്

യുവജനങ്ങളും സന്നദ്ധ സംഘടനകളും ഇതിനായി ഇടപെടൽ നടത്തണം വാക്സിൻ സ്വീകരിച്ചാൽ ഒരു മാസത്തേക്ക് രക്തദാനം പാടില്ലെന്ന വിദഗ്ധരുടെ അഭിപ്രായം മാനിച്ചാണ് അഭ്യർത്ഥന കോവിഡ് വ്യാപനത്തിന്റെ സാഹചര്യത്തിൽ രക്തദാനത്തിന് ആളുകൾ മടിക്കുന്ന സാഹചര്യം സംസ്ഥാനത്തുണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു കോവിഡ് വ്യാപനത്തിന്റെ ഗൌരവം മുന്നിൽക്കണ്ട് ആശുപത്രികളിൽ കിടക്കകളും തീവ്രപരിചരണ സംവിധാനവും വെന്റിലേറ്ററും ഓക്സിജനും മരുന്നും ഉറപ്പു വരുത്താൻ ഗവ എല്ലാ നടപടിയും എടുത്തിട്ടുണ്ടെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു

കഴിഞ്ഞ ദിവസങ്ങളിൽ കൂട്ടത്തോടെ ആളുകളെ പരിശോധിച്ചതുകൊണ്ടാണ് ഫലം വൈകാൻ ഇടയായത്

ദേദ സംസ്ഥാനങ്ങൾ ഉൽപാദകരിൽ നിന്ന് വാക്സിൻ നേരിട്ട് സംഭരിക്കണമെന്ന കേന്ദ്ര ഗവ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ വാക്സിൻ വാങ്ങുന്നതിന് മുന്നോടിയായ ചർച്ച പുരോഗമിക്കുകയാണെന്ന് മുഖ്യമന്ത്രി അറിയിച്ചു ഇന്ത്യയിൽ വാക്സിൻ ഉൽപ്പാദിപ്പിക്കുന്ന രണ്ടു കമ്പനികളുമായി ഇക്കാര്യത്തിൽ ബന്ധപ്പെട്ടുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു

ദേദ കോഴിക്കോട് ജില്ലയിൽ കോവിഡ് കേസുകൾ വർധിക്കുന്ന സാഹചര്യത്തിൽ ആംബുലൻസുകളുടെ ലഭ്യത ഉറപ്പാക്കാൻ ജില്ലാ ഭരണകൂടം നടപടി ആരംഭിച്ചു ഓരോ തദ്ദേശ സ്ഥാപനത്തിന്റെയും പരിധിയിൽ ഓരോ സ്കൂൾ ബസ് ആംബുലൻസ് ആക്കി മാറ്റാനാണ് തീരുമാനം

പണം കൊടുത്ത് ഉപയോഗിക്കാൻ കഴിയുന്ന ആംബുലൻസുകളും കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്കായി ഒരുക്കിയിട്ടുണ്ട്

കോവിഡ് പരിശോധനക്ക് ശേഷം ഫലം കാത്തിരിക്കുന്ന രോഗലക്ഷണം സംശയിക്കുന്നവർ വീടുകളിൽ തന്നെ കഴിയണമെന്ന് ജില്ലാ കലക്ടർ നിർദേശിച്ചു

മേഴ്സിക്കുട്ടിയമ്മ അറിയിച്ചു കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ ചേർന്ന ജില്ലാ ദുരന്തനിവാരണ അതോറിറ്റി ഓൺലൈൻ യോഗത്തിലാണ് തീരുമാനം

ദ്ദേ പത്തനംതിട്ട ജില്ലയിൽ എല്ലാ പഞ്ചായത്തുകളിലും കോവിഡ് പ്രാഥമിക ചികിത്സാ കേന്ദ്രങ്ങൾ ആരംഭിക്കണമെന്ന് ജില്ലാ കലക്ടർ നിർദേശം നൽകി

ദേദ കണ്ണൂർ സെൻട്രൽ ജയിലിൽ കോവിഡ് രോഗബാധ കൂടിയ സാഹചര്യത്തിൽ പ്രത്യേക മെഡിക്കൽ സംഘത്തെ നിയോഗിച്ചു

ദേദ രാജ്യത്ത് ഇന്നലെ വരെ കോവിഡ് വാക്സിൻ സ്വീകരിച്ചവരുടെ എണ്ണം പതിനാലര കോടി കവിഞ്ഞു

ദര രാജ്യത്തെ സ്ത്രീകളുടെയും കുട്ടികളുടെയും അഭയ കേന്ദ്രങ്ങളിൽ കോവിഡ് പരിശോധന ഊർജ്ജിതമാക്കാൻ സംസ്ഥാനങ്ങൾക്കും കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കും നിർദേശം നൽകിയതായി കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി അറിയിച്ചു അന്തേവാസികളുടെയും ജീവനക്കാരുടെയും രോഗ വ്യാപനം നേരത്തെ കണ്ടെത്തി സുരക്ഷ ഉറപ്പാക്കാനാണ് ഗവ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി വ്യക്തമാക്കി

പൊതുവാഹനങ്ങളും മെട്രോ സർവീസുകളും ഉണ്ടാവില്ല

ഗ്രാമീണ മേഖലയിൽ കാർഷിക പ്രവർത്തനങ്ങൾക്ക് അനുമതി നൽകിയിട്ടുണ്ട് ദ്ദേ ഇന്ത്യയിലെ കോവിഡ് സാഹചര്യം നേരിടാൻ അമേരിക്കൻ പ്രസിഡണ്ട് ജോ ബൈഡൻ എല്ലാ സഹായങ്ങളും ഉറപ്പു നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നടത്തിയ ടെലിഫോൺ സംഭാഷണത്തിലാണ് അമേരിക്ക പിന്തുണ വാഗ്ദാനം ചെയ്തത് വാക്സിൻ നിർമാണത്തിനാവശ്യമായ അസംസ്കൃത സാധനങ്ങളും വെന്റിലേറ്ററുകളും മരുന്നുകളും എത്രയും വേഗം കൈമാറുമെന്ന് ബൈഡൻ പറഞ്ഞു ഇരുരാജ്യങ്ങളിലെയും കോവിഡ് സാഹചര്യവും ഇന്ത്യയിലെ രണ്ടാം കോവിഡ് തരംഗവും വാക്സിൻ നിർമാണ രംഗത്തെ ശ്രമങ്ങളും ഇരു നേതാക്കളും ചർച്ച ചെയ്തു

കോവിഡ് വ്യാപനം കൃത്യമായി തടയാനായില്ലെങ്കിൽ വിതരണ മേഖലയിൽ തടസ്സങ്ങളോ നിയന്ത്രണങ്ങളോ ഉണ്ടായേക്കുമെന്ന് സാമ്പത്തിക റിപ്പോർട്ടിൽ ആർ ബി ഐ വിലയിരുത്തി

ദര ഐ പി എൽ ക്രിക്കറ്റിൽ അഹമ്മദാബാദിൽ ഇന്നലെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് പഞ്ചാബ് കിംഗ്സിനെ അഞ്ച് വിക്കറ്റിന് തോൽപ്പിച്ചു

ഇന്ന് അഹമ്മദാബാദിൽ വൈകീട്ട് ഏഴരയ്ക്ക് ഡൽഹി ക്യാപിറ്റൽസ് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ നേരിടും ദേദ ഉത്തർപ്രദേശിൽ തടവിൽ കഴിയുന്ന മാധ്യമപ്രവർത്തകൻ സിദ്ധിക് കാപ്പനെ ഡൽഹി എയിംസിലേക്ക് മാറ്റണമെന്ന ഹർജി സുപ്രീംകോടതി ഇന്ന് പരിഗണിച്ചേക്കും കേരളാ പത്രപ്രവർത്തക യൂണിയനും കാപ്പന്റെ ഭാര്യയും നൽകിയ അപേക്ഷകളാണ് കോടതി പരിഗണിക്കുന്നത് ദേദ പത്തനാപുരം ഗാന്ധിഭവനും സാംസ്കാരിക വകുപ്പും ചേർന്ന് കൊല്ലത്ത് സംഘടിപ്പിച്ച അഖിലകേരളാ പ്രൊഫഷണൽ നാടകോത്സവത്തിൽ കോഴിക്കോട് സങ്കീർത്തനയുടെ വേനലവധി മികച്ച നാടകമായി തിരഞ്ഞെടുത്തു ഓച്ചിറ സരിഗയുടെ നളിനാക്ഷന്റെ വിശേഷങ്ങൾ രണ്ടാം സ്ഥാനവും തിരുവനന്തപുരം സംഘകേളിയുടെ മക്കളുടെ ശ്രദ്ധക്ക് മൂന്നാം സ്ഥാനവും നേടി

ദേദ നിയമസഭാ ദിനാചരണത്തിന്റെ ഭാഗമായി സഭാ സെക്രട്ടറിയേറ്റ് തയ്യാറാക്കിയ ഏതാനും പുസ്തകങ്ങൾ രാവിലെ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ പ്രകാശനം ചെയ്യും